ത സുഭിക്ഷ കേരളം പദ്ധതി വിജയിപ്പിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ത നീല റേഷൻ കാർഡുകൾക്ക് സൌജന്യ പലവ്യഞ്ജന കിറ്റുകൾ ഇന്നുമുതൽ വിതരണം ചെയ്യും വാർത്തകൾ വിശദമായി കേന്ദ്രഗവൺമെന്റിന്റെ വന്ദേഭാരത് ദൌത്യത്തിന് തുടക്കം കുറിച്ച് ഗൾഫ് മലയാളികളുമായി എയർഇന്ത്യയുടെ രണ്ട് വിമാനങ്ങൾ കേരളത്തിലെത്തി

ആലപ്പുഴ എറണാകുളം കാസർകോട് മലപ്പുറം കോട്ടയം പാലക്കാട് തൃശൂർ പത്തനംതിട്ട ജില്ലകളിലെ പ്രവാസികളാണ് നെടുമ്പാശേരിയിലെത്തിയത്

തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിലെ പ്രവാസികളാണ് കരിപ്പൂരിലെത്തിയ ആദ്യ വിമാനത്തിലുണ്ടായിരുന്നത്

രാജ്യാന്തര കണ്ണൂർ വിമാനത്താവളത്തിൽ ഇതിനായുള്ള എല്ലാ സജ്ജീകരണവും പൂർത്തിയായതായി കിയാൽ മാനേജിംഗ് ഡയരക്ടർ വി തുളസീദാസ് ആകാശവാണിയോട് പറഞ്ഞു അന്തിമ നടപടികൾ വിലയിരുത്തുന്നതിന് ഇന്ന് ഉന്നതതലയോഗം ചേരുന്നുണ്ട് രുമ അടുത്ത ആഴ്ച സൌദി അറേബ്യയിൽ നിന്ന് അഞ്ച് വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് പ്രവാസികളെ എത്തിക്കുമെന്ന് സൌദിയിലെ ഇന്ത്യൻ അംബാസഡർ സഈദ് അറിയിച്ചു

തുടർന്ന് ഏഴു ദിവസം ഇവർ വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയണം ഗവൺമെന്റ് ക്വാറന്റൈനിലേക്ക് മാറ്റുന്നവരെ സ്വന്തം ജില്ലകളിലാണ് താമസിപ്പിക്കുക

രുമ തൃശൂർ ജില്ലയിലെത്തുന്ന പ്രവാസി മലയാളികൾക്ക് താലൂക്കടിസ്ഥാനത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ സൌകര്യം ഏർപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ എസ് ഷാനവാസ് പറഞ്ഞു പ്രവാസി മലയാളികളുടെ ആദ്യസംഘത്തിന് ഗുരുവായൂരിലാണ് ക്വാറന്റീൻ സൌകര്യം ഒരുക്കിയിരിക്കുന്നത്

കോവിഡ് കെയർ സെന്ററുകളായി നേരത്തെ ഏറ്റെടുത്ത ഹോട്ടലുകളിലും റിസോർട്ടുകളിലുമാണ് ഇവരെ പാർപ്പിക്കുക

പാലക്കാട് ജില്ലയിലെ ആലത്തൂർ തിരുമിറ്റക്കോട് പഞ്ചായത്തുകളെ ഹോട്ടസ്പോട്ടിൽ നിന്ന് ഒഴിവാക്കി

ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇതിന് സൌകര്യമൊരുക്കിയതായും അദ്ദേഹം പറഞ്ഞു

രേര ഭക്ഷ്യസുരക്ഷ ലക്ഷ്യമാക്കി സംസ്ഥാനം നടപ്പാക്കുന്ന സുഭിക്ഷ കേരളം പദ്ധതി വിജയിപ്പിക്കുന്നതിന് തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും സജീവ പങ്കാളിത്തം വഹിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തദ്ദേശസ്വയംഭരണ സ്ഥാപന ഭാരവാഹികളുമായി വിക്ടേഴ്സ് ചാനലിലൂടെ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇവരോടൊപ്പം ജില്ലാ കലക്ടർമാരും വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്തു

പ്രവാസികളുടെ മടങ്ങിവരവ് നമ്മുടെ സമ്പദ്ഘടനയെ കൂടുതൽ പ്രയാസത്തിലാക്കുമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു

ആരോഗ്യമന്ത്രി ഡോ ഹർഷ് വർധനും ആയുഷ് വകുപ്പ് മന്ത്രി ശ്രീപദ് യശോ നായിക്കും ചേർന്ന് ഇരു പദ്ധതികൾക്കും തുടക്കം കുറിച്ചു

രുമ കണ്ണൂർ ജില്ലയിലെ ഹോട്ട് സ്പോട്ടുകളുടെ എണ്ണത്തിൽ കുറവു വരുത്തി

പ്രദേശങ്ങൾ ഹോട്ട്സ്പോട്ട് ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായാണ് നടപടി

റേഷൻ കാർഡ് നമ്പരുകളുടെ അവസാന അക്കം കണക്കാക്കി തിയതി ക്രമീകരിച്ചിട്ടുണ്ട്

കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മൂന്നു പേരുടേയും കാസർഗോഡ് ജില്ലയിലെ രണ്ടു പേരുടേയും പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്

രോഗമുക്തരായ ശേഷം സ്റ്റെപ് ഡൌൺ ഐ

യുവിൽ തുടർ നിരീക്ഷണത്തിലായിരുന്നു ഇവർ